രണ്ടാം വട്ടവും കേന്ദ്രത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ ബി

പി നേതൃത്വം നൽകുന്ന എൻ

ഗൂജറാത്തിലെ സൂറത്തിൽ ഉണ്ടായ വൻ തീപിടിത്തത്തിൽ പത്തോളം പേർ മരിച്ചതായി പ്രാഥമിക വിവരം

സുപ്രീംകോടതിയിൽ നാല് പുതിയ ജഡ്ജിമാർ കൂടി ചുമതലയേറ്റു

ജെ

അരുണാചൽ വെസ്റ്റിൽ ബി ജെ

ജെ

ജെ പി നേതൃത്വം നൽക്കുന്ന എൻ

കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു

ജെ

ജെ പി ക്ക് ലഭിച്ചത്

ജെ പി ക്ക് നഷ്ടപ്പെട്ടുള്ളൂ

കോൺഗ്രസ് സ്ഥാനാർത്ഥി അജ്യ് റായ് മൂന്നാമതെത്തി

ജെ

പ്രമേയം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകരിക്കുന്നതോടെ നിലവിലെ ലോക്സഭ ഇല്ലാതാകും

ഡി

അതേസമയം എൽ

വോട്ടു വിഹിതത്തിൽ ബി ജെ പി നേട്ടമുണ്ടാക്കി

ജെ

മുന്നിലെത്താനായുള്ളൂ നേമത്ത് ബി ജെപ്പി ലീഡ് നിലനിർത്തി

ശ്രീ അദ്വാനിയുടെ ന്യൂഡൽഹിയിലുള്ള വസതിയിലായിരുന്നു കൂടിക്കാഴ്ച

പാർട്ടിക്ക് വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായ പരാജയത്തിന്റെ ് കാരണങ്ങൾ ബന്ധപ്പെട്ട നേതാക്കൾ യോഗത്തിൽ വിശദീകരിക്കുള്ട്

പാട്ടീൽ രാജിവെച്ചു

ഡി എസ് ഉം കോൺഗ്രസും നേടിയത്

അതിനിടെ കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ജി പരമേശ്വര മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമിയുമായി ചർച്ച നടത്തി

ബഹുനില മന്ദിരത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുന്നിടത്താണ് തീ പിടിച്ചത് കെട്ടിടത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നുവെന്ന് വൃക്തമല്ല മരണ സംഖ്യ ഇനിയും ഉയർന്നേക്കും അപകടത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു

അൽഹൃഖദ അനുഭാവ സംഘടനയായ അൻസർ ഗസ്വത് ഉൽ ഹിന്ദ് നേതാവാണ് സക്കീർ മൂസ ഇന്ന് രാവിലെ മൃതദേഹം പൂ കണ്ടെത്തിയപ്പോഴാണ് മൂസയാണെന്ന് തിരിച്ചറിഞ്ഞതെന്ന് പ്രതിരോധ വക്താവ് പറഞ്ഞു ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തുനിന്നും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു

ജസ്റ്റിസുമാരായ ബി

ഗവായ് സൂര്യകാന്ത് അനിരുദ്ധ ബോസ് എ

അറസ്റ്റ് തടയണമെന്ന രാജീവ്കുമാറിന്റെ ആവശ്യം പരിഗണിച്ച് നേരത്തെ കോടതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് സി ബി

വാദ്രയുടെ സഹചാരി മനോജ് അറോറക്കും അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാണ് എൻഫോഴ്സമെന്റിന്റെ ആവശ്യം ജാമ്യത്തിലുള്ളവരുടെ പ്രവർത്തനം അന്വേഷണത്തെ ബാധിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു